ഗവൺമെന്റ് പദ്ധതികൾ സമയ ബന്ധിതമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രി

അമേരിക്കൻ പത്രം ഓഫീസിൽ നടന്ന വെടിവയ്പ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു

ഫിഫ ലോകകപ്പിൽ കൊളംബിയയും ജപ്പാനും പ്രീ കാർട്ടറിലേക്ക് കടന്നു

വൃദ്ധജനങ്ങൾക്കായി വിവിധോന്മുഖ ആരോഗ്യ പരിപാലനമാണ് കേന്ദ്രം വഴി ലക്ഷ്യമിടുന്നത്

ഉത്തർപ്രദ്ദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര കർണ്ണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമന്ത്രിയെ കാണുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കരിമ്പ് കൃഷി മേഖലയിലെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും ഇടപെടലുകളും ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ് സൂചന

പശ്ചിമബംഗാളിലും ബിജെപി അധികാരത്തിലെത്തിയാൽ ഈ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാളിൽ എല്ലാ ഫാക്ടറികളും പൂട്ടിയെന്നും ബോംബ് നിർമാണശാലകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു പുരുളിയിൽ ബിജെപി റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദിശ പദ്ധതി സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ എം പി മാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

ദിശായോഗങ്ങൾ ചിട്ടയായി സംഘടിപ്പിച്ചതിനുള്ള പുരസ്കാരങ്ങൾ കേരളം ഛത്തീസ്ഗഡ് ജാർഖ്ണ്ഡ് മിസോറാം ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് സമ്മാനിച്ചു

ദേശീയപാത വികസന രംഗത്തുണ്ടാകുന്ന അവസരങ്ങൾ അപ്പപ്പോൾ അറിയാനും ഈ മേഖലയിലെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ബാങ്കുകൾ തയ്യാറാകണമെന്നും ശ്രീ ഗഡ്കരി ആവശ്യപ്പെട്ടു

നയപരമായ ഇടപെടൽ വഴി അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലനിലവാരം പിടിച്ചു നിർത്തുന്നതിനുള്ള തന്ത്രങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക അവശ്യസാധന നിയമം കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയൽ നിയമം ഭക്ഷ്യ ഭദ്രതാ നിയമം എന്നിവയുടെ ് നടത്തിപ്പ് സംബന്ധിച്ചും ചർച്ച നടക്കും പരാതി പരിഹാര ഫോറങ്ങളുടെ പ്രവർത്തനവും വിലയിരുത്തും രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ്ഗ ഹോസ്റ്റലുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി ആരംഭിച്ച പുതിയ പദ്ധതികളെ സംബന്ധിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്യും

വാഷിങ്ടണിന് സമീപം ചരിത്രനഗരമായ അന്നാപൊളിസിലെ ക്യാപ്പിറ്റൽ ഗസ്റ്റ് പത്രത്തിന്റെ ഓഫീസിലാണ് വെടിവയ്പ് നടന്നത് അക്രമിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്

മുൻകരുതലെന്ന നിലയിൽ ബാൾട്ടിമോറിലും ന്യൂയോർക്ക് നഗരത്തിലും അധികൃതർ പ്രമുഖ മാധ്യമസ്ഥാപനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന് റിപ്പോർട്ട് നൽകിയതായി വൈറ്റ് ഹൌസ് വക്താവ് ലിൻസേ വാൾട്ടേഴ്സ് പറഞ്ഞു

കൊൽക്കത്തയിൽ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്സിയർ ഫിസിക്സിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി എട്ടാം ക്ലാസ്സ് മുതൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച വിജ്ഞാൻ പ്രതിഭ പദ്ധതിയെ അദ്ദേഹം പ്രകീർത്തിച്ചു ശാസ്ത്രജ്ഞരുടെയും സൈനികരുടെയും കർഷകരുടെയും ത്യാഗങ്ങളിലും സമഭാവനകളിലും രാജ്യത്തെ ഓരോ പൌരനും അഭിമാനിക്കണമെന്ന് വെങ്കയ്യനായിഡു പറഞ്ഞു

നാളിതുവരെ ഗവേഷണ വിധേയമാകാതെ കിടക്കുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിലെ പച്ചമരുന്നുകളേയും ചികിത്സാവിധികളേയും സംബന്ധിച്ച് അറിവ്ട് ഇതുവഴി ലഭിക്കുമെന്ന് ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് ക്കൊത്തേച്ച പ്രത്യാശ പ്രകടിപ്പിച്ചു പ്തസ്ടു തലംവരെ സംസ്കൃത് വിഷയമായി പഠിച്ച വിദ്യാർഥികളെ ഉദ്ദേശിച്ചാണ് പാഠ്യപ്ദ്ധതി ആരംഭിക്കുന്നത് ലേ യിൽ ഒരു ദിവസത്തെ സേവാ റിഗ്പാട് പ്രിശ്രീലകരുടെ ശിൽപശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആയുഷ് സെക്രട്ടറി ഡെങ്കിപ്പനിക്കെതിരായ പ്രതിരോധ് മരുന്ന് വികസനത്തിൽ ആയുഷ് മന്ത്രാലയം അത്ഭുതാവഹമായ പുരോഗതിയുടെ പാതയിലാണെന്ന് ശ്രീ രാജേഷ് ആകാശവാണിയോട് പറഞ്ഞു

ഇന്നലെ രാത്രി നെതർലൻഡ്സിലെ ബ്രീഡയിൽ നടന്ന മൽസരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി കളിയുടെ തുടക്കത്തിൽ പെനാൽറ്റി കോർണറിൽ നിന്ന് ഹർമൻ പ്രീത് സിങാണ് ഇന്ത്യയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തത്

പഞ്ച്കുല അംബാല പാനിപ്പത്ത് കർണാൽ ഭിവാനി എന്നിവിടങ്ങളിലാണ് ക്യാന്റീൻ തുടങ്ങുകയെന്ന് തൊഴിൽ സഹമന്ത്രി നായബ് സിങ് സെയ്നി അറിയിച്ചു നിലവിൽ സോനിപത്ത് ഗുഡ്ഗാവ് യമുനാനഗർ ഫരീദാബാദ് ഹിസാർ ജില്ലകളിൽ ഇത്തര്യാക്യാന്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്

കേരള തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്